കുഞ്ഞാലിക്കു ട്ടിയോട് പാർട്ടി നേതൃത്വം വിശദീകരണം തേടി വനിതാ മതിലിനെതിരെ അടിസ്ഥാന രഹിത പ്രചാ രണങ്ങൾ ന്ടക്കുന്നതായി മന്ത്രി ഡോ തോമസ് ഐസക്

നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പൊതുവിദ്യാല യങ്ങളാണ് അടിത്തറ പാകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതുകൊണ്ടാണ് പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചത് പൊതുവിദ്യാല യങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തേ ണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാതൃഭാഷയ്ക്ക് ഒപ്പം ഇംഗ്ലീഷ് ഭാഷയും കുട്ടികൾക്ക് ഒഴുക്കോടെ സംസാരിക്കാൻ സാധിക്കണം ഇതിനായാണ് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ റിലിഷ് എന്ന പേരിൽ പുതിയ പാഠ്യപദ്ധതി നടപ്പാക്കിയത് സംസ്ഥാനത്തെ പത്ത് വിദ്യാലയങ്ങളിലാണ് പാഠ്യപദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ ചാലാ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിന്റെ പുതിയകെട്ടിടോദ്ഘാടനവും റിലിഷ് പദ്ധതിയുടെ സംസ്ഥാന തല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുത്തലാഖ് ബിൽ ചർച്ച ചെയ്യുന്ന ദിവസം ലോക്സഭയിൽ ഹാജരാ കാതിരുന്ന മുസ്ലീംലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി

കുഞ്ഞാലി ക്കുട്ടിയോട് പാർട്ടി നേതൃത്വം വിശദീകരണം തേടി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് വിശദീകരണം തേടിയത് മുത്തലാഖ് ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാതിരുന്നത് വിവാദങ്ങൾക്കിടയാക്കിയ സാഹചര്യത്തിലാണ് നേതൃത്വത്തിന്റെ ഇടപെ ടൽ ഐ

എൽ ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ കുഞ്ഞാലിക്കുട്ടി യുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു

മുത്ത ലാഖ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാത്ത കുഞ്ഞാലിക്കുട്ടി പാർലമെന്റ് അംഗത്വം രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് വനിതാമതിലിനെതിരെ അടിസ്ഥാന രഹിത പ്രചാരണങ്ങൾ നടക്കു ന്നതായി മന്ത്രി ഡോ

പങ്കെടുക്കാത്ത കുടും ബശ്രീ അംഗങ്ങൾക്ക് വായ്പ നൽകില്ലെന്ന പ്രചരണം തെറ്റാണെന്ന് അദ്ദേഹം കൊച്ചിയിൽ അറിയിച്ചു

ആരോപണം ഉന്നയിക്കുന്നവർ നവോ ത്ഥാനത്തെ പിറകോട്ടടിക്കുന്നവരാണെന്നും വനിതാമതിലിൽ പങ്കെടു ക്കാൻ ആരെയും നിർബന്ധിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു വനിതാമതിലിൽ പങ്കെടുക്കാൻ ഗവൺമെന്റ് ജീവനക്കാരെ നിർബ ന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു ഇതിനെതിരെ ശക്തമായി പ്രതിഷേധി ക്കുമെന്നും സമൂഹം ഇത് തിരിച്ചറിയണമെന്നും അദ്ദേഹം തിരുവനന്തപു രത്ത് പറഞ്ഞു

വനിതാമതിൽ വർഗ്ഗീയ മതിലാണെന്ന് കരുതുന്നില്ലെന്ന് ബിഡിജെഎസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വനിതാമതിൽ നവോത്ഥാന സംഘടനകളുടെ പിന്തുണയോടെ ഗവൺമെന്റ് നടത്തുന്ന പരിപാടിയാണ് അത് ശബരിമലയ്ക്ക് എതിരല്ല വനിതാമതിലിൽ പങ്കെടുക്കണമെന്നോ വേണ്ടെന്നോ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല താൽപര്യമുള്ള ആർക്കും പരിപാടിയിൽ പങ്കെടുക്കാമെന്നും വനിതാമതി ലിനെചൊല്ലി പാർട്ടിയിൽ ഭിന്നത ഇല്ലെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യ മങ്ങളോട് പറഞ്ഞു

വനിതാ മതിലിന് ് എതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി യുഡിഎഫ് വനിതാ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് സംഗമം വൈകീട്ട് മൂന്നിന് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംഗമം ഉദ്ഘാടനം ചെയ്യും ഗവൺമന്റ് സംവിധാനം ദുരുപയോഗം ചെയ്തും നിർബന്ധിത പിരിവ് നടത്തിയും വനിതാ മതിൽ നടത്തുന്നതിന് എതിരായ പ്രതിഷേധമാണ് സംഗമമെന്ന് യുഡിഎഫ് ചെയപേർസൺ ലതികാ സൂഭാഷ് തിരുവനന്തപുരത്ത് പറഞ്ഞു ഇന്ന് ചേരാനിരുന്ന കെപിസിസി രാഷ്ട്രീയ കാര്യ സമിതി യോഗം നാളത്തേക്ക് മാറ്റി വൈകീട്ട് അഞ്ചിന് കെപിസിസി ആസ്ഥാനത്താണ് യോഗം നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതി യോഗം ചർച്ചു ചെയ്യും ക്ഷേത്രാചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ക്ഷേത്ര ങ്ങളിലെത്തുന്ന് ഭക്തരുടെ താൽപര്യത്തിനാണ് മുൻഗണന ശബരിമല യിൽ ബോധ്പൂർപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിലപാടും അംഗീക രിക്കാനാവില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു മകരവി ളക്ക് കാലം സുഗമമായി നടക്കും ഭരണഘടനയിൽ തൊട്ടു സത്യം ചെയ് ത ഗവൺമെന്റിന് സുപ്രീംകോടതി വിധി നടപ്പാക്കേണ്ടി വരുമെന്നും കടകംപള്ളി വൃക്തമാക്കി തൊടുപുഴയിൽ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ കാർഷിക മേളയുടെ ഭാഗമായി നടത്തുന്ന ഫാം ടൂറിസം ഹോം സ്റ്റെ സെമിനാർ ഉച്ചകഴിഞ്ഞ് കേന്ദ്രസഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം ഉദ്ഘാടനം ചെയ്യും സബ്സിഡിക്ക് വേണ്ടി ബഹുവിള കൃഷി ഉപേക്ഷിച്ചത് കാർഷിക മേഖ ലയുടെ തകർച്ചക്ക് ആക്കം കൂട്ടിയതായി എംജി സർവ്വകലാശാല മുൻ വൈസ് ചാൻസലർ ഡോ സിറിയക് തോമസ് ഇന്നലെ സെമിനാറിൽ അഭി പ്രായപ്പെട്ടിരുന്നു കേരള ചിക്കൻ പദ്ധതി നാളെ മലപ്പുറം കോട്ടക്കുന്ന് ഡി ടി

സി ഓപ്പൺഎയർ ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇറച്ചിക്കോഴി ലഭ്യതയും വില സ്ഥിരതയും ഉറപ്പാ ക്കാനും കോഴിവളർത്തൽകാരുടെയും ഉപഭോക്താക്കളുടേയും താൽപ ര്യങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് കേരള ചിക്കൻ പദ്ധതി ആരംഭിക്കുന്നത് കൃഷിക്കാർക്ക് വളർത്തുകൂലിയും ലാഭ വിഹിതവും പദ്ധതിയിൽ ലഭിക്കും

അത്യാധുനിക ഉപകണങ്ങൾ തെരച്ചിലിനായി പ്രയോജ നപ്പെടുത്തുന്നുണ്ട് അതേസമയം മൂന്ന് ഹെൽമറ്റുകൾ ഇവിടെനിന്നും കണ്ടെടുത്തായി ദേശീയ ദുരന്ത നിവാരണ സേന അറിയിച്ചു

കർണാടകത്തിലെ ജനതാദൾ കോൺഗ്രസ് സഖ്യ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ബിജെപി ശ്രമിക്കുകയാണെന്ന് കർണാടക ഉപമു ഖ്യമന്ത്രി ജി പരമേശ്വര കുറ്റപ്പെടുത്തി എന്നാൽ ബിജെപിയുടെ ഓപ്പറേ ഷൻ ലോട്ടസ് ശ്രമം വിലപ്പോവില്ലെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു മന്ത്രിസഭാ പുനസംഘടനയിലും വകുപ്പ് വിഭജനത്തിലും മുന്നണിക്കുള്ളിൽ തർക്കമുണ്ടെങ്കിലും അത് പരിഹരിക്കാവുന്നതേ ഉള്ളുവെന്ന് പരമേശ്വര പറഞ്ഞു

ജമ്മുകശ്മീരിലെ പുൽവാമ ജില്ലയിൽ നാല് ഭീകര പ്രവർത്തകരെ സുരക്ഷാസേന വധിച്ചു പ്രദേശത്ത് ഭീകരപ്രവർത്തകർ ഉണ്ടെന്ന രഹസ്യ വിവരത്തെതുടർന്ന് പരിശോധനയ്ക്കെത്തിയ സൈന്യത്തിനുനേരെ ഭീക രർ വെടിവെയ്ക്കുകയായിരുന്നു പുൽവാമ സാംബ മേഖലകളിൽ സൈനൃം തെരച്ചിൽ തുടരുകയാണ്

ഓസ്ട്രേലിയക്കെതിരായ മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയ ത്തിലേക്ക്

ജഡേജ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി

കേരള പൊലീസിന്റെ നവമാധ്യമ ഇടപെടലുകൾ സംബന്ധിച്ച് മൈക്രോസോഫ്റ്റ് പഠനം നടത്തുന്നു നിയമപാലക സംവിധാനം നവ മാധ്യമങ്ങളെ എങ്ങിനെ ഉപയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച ഗവേഷ ണ ത്തിന്റെ ഭാഗമായാണ് പഠനം ഫേസ് ബുക്ക് പേജിൽ അടുത്തിടെ നടത്തിയ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളാണ് കേരള പൊലീസിനെ പഠനത്തിന് തെരഞ്ഞെടുക്കാൻ കാരണമായത് മൈക്രോ സോഫ്റ്റ് ബംഗലൂരു ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിൽ നടക്കുന്ന പഠന ത്തിന്റെ ഭാഗമായി ഗവേഷകയായ ദ്രുപ ഡ്രിനി ചാൾസ് തിരുവനന്തപു രത്തെ് പൊലീസ് ആസ്ഥാനത്തെത്തി സോഷ്യൽ മീഡിയ സെൽ നോഡൽ ഓഫീസർ ഐ

മനോജ് എബ്രഹാം മീഡിയ സെല്ലിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമായി അവർ ആൾയവിനിമയം നടത്തി മാനസിക ശാരീരിക പീഢനങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടി കൾക്കും നിയമ പരിരക്ഷയും വൈദ്യ സഹായവും താൽക്കാലിക താമസ സൌകര്യവും ഒരിടത്ത് തന്നെ ലഭ്യമാക്കുന്ന സഖി വൺ സ്റ്റോപ് സെന്റർ പെരിന്തൽമണ്ണയിൽ നാളെ പ്രവർത്തനം തുടങ്ങും മന്ത്രി കെ

ശൈ ലജ ഉദ്ഘാടനം ചെയ്യും ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന മെഗാ ക്യാമ്പ് നാളെ താനൂർ ദേവദാർ ഹയർ സെക്കന്ററി സ്കൂളിൽ നട ക്കും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അലിംകോയുടെ ആഭിമുഖ്യ ത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മന്ത്രി കെ

ശൈലജ ഉദ്ഘാ ടനം ചെയ്യും സോളാർ തട്ടിപ്പിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ വ്യാജ കത്തുണ്ടാക്കിയെന്ന കേസിൽ കോടതി ഇന്ന് വിധി പറയും തിരുവനന്തപുരം സി

സൈബർ സുരക്ഷ സംബന്ധിച്ച് സ്കൂൾ കുട്ടികളെ ബോധവൽ ക്കരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈപ്പുസ്തകം പുറത്തിറക്കി സൈബർ രംഗത്തെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്നതാണ് പുസ്തകം സമൂഹമാധ്യമങ്ങളിൽ കുട്ടികൾ വഞ്ചിതരാകുന്നത് തടയുകയാണ് ലക്ഷ്യം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുമെന്ന് ഡോ

പ്രളയത്തിൽ വലിയ സേവനമാണ് മത്സ്യത്തൊഴിലാളികൾ നൽകിയതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു പത്തനംതിട്ട മെഡിക്കൽ മിഷന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു

സാങ്കേതിക സർവ്വകലാശാല ജനുവരി ഒന്നിന് നടത്താനിരുന്ന എട്ട് എഞ്ചിനീയറിംഗ് പരീക്ഷകൾ മാറ്റി